ഇത് സംബന്ധിച്ച യു എൻ സ്റ്റ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ കൊറോണ ബാധ പരിശോധന നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വോയിസ് ഹരിത വികസന മാതൃക സുസ്ഥിര ജീവിതശൈലി സംരക്ഷണം എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വന്യജീവി ആവാസ വ്യവസ്ഥ തുടങ്ങിയവയുടെ സംരക്ഷണം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് വന്യജീവി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതികളെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ആസിയാൻ പശ്ചിമേഷ്യൻ ഉച്ചകോടി രാജ്യങ്ങളുമായുള്ള സഹകരണം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ ബാബുൾ സുപ്രിയോ സി എം എസ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആമി ഫ്രാനെൻകൽ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റൂപാനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു

ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശാടകർക്ക് ആതിഥ്യമരുളാം എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രമേയം ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്ഥിരം കമ്മീഷന് താൽപര്യം പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് മൂന്ന് മാസത്തിനകം അത് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു മാനസികവും സാമൂഹികവുമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വനിതകൾക്ക് സ്ഥിരം കമ്മീഷൻ നൽകുന്നില്ലെന്ന കേന്ദ്രത്തിന്റെ വാദം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധൃക്ഷനായ ബഞ്ച് തള്ളി വനിത ഓഫീസർമാർ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സമ്മാനിച്ച ചരിത്രം ചൂണ്ടിക്കാട്ടിയ കോടതി കരസേനയിലെ ലിംഗവിവേചനം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു

ന്യൂഡൽഹിയിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ക്ട്രെട്രബ്യൂണലിന്റെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിലവിൽ ജമ്മു കശ്മീരിലെ കേന്ദ്ര വിഷയങ്ങൾ മാത്രമാണ് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നത്

അതുവരെ അട്രൈബ്യൂണലിന്റെ അണ്ഡിഗഡ് ബഞ്ചായിരിക്കും ജമ്മു കശ്മീരിലെയും ലഡാക്കിലെയും സർവ്വീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ദാമൻ ദിയുവിൽ എത്തുന്ന അദ്ദേഹം വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവ്വഹിക്കും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ദാമനിലെ സ്വാമി വിവ്വേകാനന്ദ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹൃഷ്ട് പിതരണം ചെയ്യും ആയൂഷ്മാൻ ഭാരത് പദ്ധതിയിൽ ക്കൾപ്പെടുത്തി തുടങ്ങിയ പുതിയ അഞ്ച് ആരോഗ്യ സംരക്ഷണൂ ്ക്രിഗ്ദങ്ങളും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും

റോഡ് പുനസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയ്ക്കും മ്യാൻമറിനും ഒരുപോലെ പ്രയോജനകരമായ സ്റ്റിൽവെൽ റോഡ് പഴയ സാംസ്കാരിക ബന്ധം ദൃഢമാക്കുമെന്നും ആത്മീയ ടൂറിസത്തിന് പ്രോത്സാഹനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ആസിയാൻ രാജ്യങ്ങളിലേക്കുള്ള കവാടമാണ് വടക്ക് കിഴക്കൻ മേഖലയെന്നും ശ്രീ ചൌന മേൻ വ്യക്തമാക്കി

തീവ്രവാദ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കാൻ പാകിസ്ഥാനുമേൽ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തും ജെയ്ഷെ മൊഹമ്മദ് തലവൻ മൌലാന മസൂദ് അസർ ലഷ്കർ ഇ തോയ്ബ നേതാവ് സാഖിയൂർ റഹ്മാൻ ലഖ്വി എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്

ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബിഹാർ സിക്കിം പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ അതിർത്തി ഗ്രാമങ്ങളിലാണ് ബോധവൽക്കരണം ശക്തമാക്കുന്നത്

ചൈനയിലെ വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയതാണ് ഇവർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദേശമനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്യാമ്പിലുളളവരെ പുറത്ത് വിടുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും

മറ്റു നാലു പേരുടെ പരിശോധനാഫലം രണ്ടു ദിവസത്തിനുളളിൽ അറിയാനാകുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു

ആരോഗ്യമേഖലയിലെ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ ബീജിംഗിൽ എത്തി ചൈനീസ് അധികൃതരുമായി ചർച്ച നടത്തി

കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ് ഇക്കാര്യം

കൊറോണ വൈറസ് രോഗബാധയ്ക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത തുടരുകയാണെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു്

വോയിസ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിന്റെ ഗുണമേൻമ മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതിക്ക് കർഷകരുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയാണ് ഇപ്പോഴും ലഭിക്കുന്നത് മണ്ണിന്റെ പോഷാകാംശം രണ്ട് വർഷത്തിലൊരിക്കൽ പരിശോധിക്കുകയും അവ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഈ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും

മണ്ണിന്റെ പോഷകാംശം മെച്ചപ്പെടുത്തുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശ്യവാണി

പാകിസ്ഥാൻ കൈയടക്കിവച്ചിരിക്കുന്ന ജമ്മു കശ്മീരിന്റെ പ്രദേശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേ വിഷയമെന്ന് ശ്രീ

ദേശീയ ഐകൃവും സാഹോദരൃവും ഉൌട്ടിയു്റപ്പിക്കുന്ന വിവിധ പദ്ധതികളാണ് സംരംഭത്തിന്റെ ഭാഗ്മായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്